സി സർവീസുകൾ പ്രതിസ ന്ധിയിലായി

എംപാനൽ കണ്ടക്ടർമാരെ കൂട്ടത്തോടെ പിരിച്ചുവിട്ടതോടെ കെ എസ്

ടിസി പ്രതിസന്ധി യിലായി ഇന്ന് സംസ്ഥാനത്ത് അറുനൂറിൽപരം സർവീസുകൾ ഉപേക്ഷിക്കേണ്ടി വരുമെന്നാണ് കെ എസ് ആർ ടി സിയുടെ വിലയിരുത്തൽ

സ്ഥിരം കണ്ടക്ടർമാർക്ക് ഉയർന്ന വേതനം വാഗ്ദാനം ചെയ് തെങ്കിലും അധിക ഡ്യൂട്ടിയെടുക്കാൻ മിക്കയിടത്തും ആരും തയാറായിട്ടില്ല വരുംദിവസങ്ങളിലും പ്രതിസന്ധി തുടരുമെന്നാണ് വിലയിരുത്തൽ

സി യിൽ പ്രതിസന്ധി രൂക്ഷമായതായി മന്ത്രി എ

ഇത് കെ

ടി സി യുടെ നിലനിൽപ്പിനെപോലും ബാധിക്കുമെന്ന് മന്ത്രി തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു

എസ്

സി യിൽ കണ്ടക്ടർ നിയമനത്തിന് അഡൈസ് മെമ്മോ ലഭിച്ചുവരെ രണ്ടുദിവസത്തിനകം നിയമിക്ക ണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു നിയമനം നടത്തിയകാര്യം രണ്ടുദിവസത്തിനകം അറിയിക്കണമെന്നും ഹൈക്കോടതി ഗവൺമെന്റിന് കർശന നിർദേശം നൽകി ഇക്കാര്യത്തിൽ സാവ കാശം വേണമെന്ന ഗവൺമെന്റ് നിലപാടിനെ ഡിവിഷൻ ബെഞ്ച് ശക്തിയായി വിമർശിച്ചു കണ്ടക്ടർമാർക്ക് പ്രത്യേക പരിശീലനം നൽകേണ്ടതില്ലെന്നും കാര്യമായ പരിശീലനം ആ ജോലിക്ക് ആവ ശ്യമില്ലെന്നും കോടതി അഭിപ്രായപ്പെട്ടു കേസിൽ കക്ഷിചേരുന്ന തിന് ജീവനക്കാർ നൽകിയ ഹർജി പിന്നീട് പരിഗണിക്കുമെന്നും കോടതി പറഞ്ഞു അതിനിടെ എംപാനൽ ജീവനക്കാരെ മുഴുവൻ പിരിച്ചുവിട്ട തായി കാണിച്ച് കെ എസ് ആർ ടി സി എം ഡി ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകി എംപാനൽ ജീവനക്കാരെ പിരിച്ചുവിട്ടതിനെ തുടർന്നുണ്ടായ പ്രതിസന്ധി പരിഹരിക്കാൻ ശ്രമം തുടങ്ങിയതായി കെ

സി എം ഡി ടോമിൻ ജെ തച്ചങ്കരി പറഞ്ഞു സ്ഥിരം ജീവന ക്കാരുടെ സമയം കൂട്ടുമെന്നും ജീവനക്കാരുടെ അവധിയ്ക്ക് നിയ ന്ത്രണം ഏർപ്പെടുത്തിയതായും തച്ചങ്കരി തിരുവനന്തപുരത്ത് അറി യിച്ചു

എസ് സി നിയമനം നടക്കുന്നതുവരെ താൽക്കാലിക ജീവ നക്കാരെ നിയമിക്കുന്നതിന് ഹൈക്കോടതിയുടെ അനുമതി തേടു മെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു പാർലമെന്റിന്റെ ഇരുസഭകളും പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ഇന്ന് ഉച്ചവരെ പിരിഞ്ഞു ലോക്സഭയിൽ റഫേൽ ഇടപാടിൽ സംയുക്ത പാർലമെന്ററിസമിതി അന്വേഷണം വേണമെന്ന് ആവ ശ്യപ്പെട്ടായിരുന്നു കോൺഗ്രസ് അടക്കം പ്രതിപക്ഷ പാർട്ടികളുടെ ആവശ്യം അതുവരെ സഭാനടപടികളുമായി സഹകരിക്കില്ലെന്ന് കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചു രാജ്യസഭയിൽ അണ്ണാ ഡി

കെ ഡി

കെ അടക്കം പാർട്ടികൾ വിവിധ വിഷയങ്ങൾ ഉന്നയിച്ചാണ് സഭാ നടപടികൾ തടസ്സ്പ്പെടുത്തിയത് ഇതേ തുടർന്ന് ഉച്ചയ്ക്ക് രണ്ടുവരെ സഭ പിരി യുകയായിരുന്നു

പി ദേശീയ അധ്യക്ഷൻ അമിത് ഷാ പറഞ്ഞു കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും പ്രകോ പനങ്ങളുണ്ടാക്കി സ്ഥിതി വഷളാക്കുകയായിരുന്നെന്നും അദ്ദേഹം ടിറ്ററിലൂടെ ആരോപിച്ചു സിഖ് വിരുദ്ധകലാപക്കേസിൽ കോൺഗ്രസ് നേതാവ് സജ്ജൻകുമാറിന് ജീവപര്യന്തം തടവ് ശിക്ഷ ലഭിച്ച സാഹചര്യത്തിലാണ് അമിത് ഷായുടെ ട്വീറ്റ്

രാജിക്കത്ത് രാഹുൽഗാന്ധിയ്ക്ക് സമർപ്പിച്ചതായി പാർട്ടി കേന്ദ്രങ്ങൾ അറിയിച്ചു പാർട്ടിയുടെ പ്രാഥമികാംഗത്വം ഉൾപ്പെടെ എല്ലാ സ്ഥാനങ്ങളും സജ്ജൻകുമാർ രാജിവെച്ചിട്ടുണ്ട് തപാൽ വകുപ്പിലെ ഗ്രാമീണ ഡാക് സേവക് ജീവനക്കാർ രാജ്യ വ്യാപകമായ പണിമുടക്ക് തുടങ്ങി കമലേഷ് ചന്ദ്ര കമ്മീഷൻ റിപ്പോർട്ടിലെ വൃവസ്ഥകൾ നടപ്പാക്കാതെ ജീവനക്കാരെ വഞ്ചിച്ചു എന്നാരോപിച്ചാണ് പണിമുടക്ക് നാഷണൽ യൂണിയൻ ഓഫ് ഗ്രാമീൺ ഡാക് സേവകും ഓൾ ഇന്ത്യ ഗ്രാമീണ ഡാക് സേവക് യൂണിയനും സംയുക്തമായാണ് പണിമുടക്കുന്നത് പൊലീസ് അനുമതി ലഭിച്ച നാല് ട്രാൻസ്ജെൻഡറുകൾ ശബ രിമലയിൽ ദർശനം നടത്തി രാവിലെ പത്തരയോടെ സ്ത്രീവേഷ ത്തിൽ നാലുപേരും സന്നിധാനത്തെത്തി കോട്ടയം എറണാകു ളം കൊല്ലം ജില്ലക്കാരാണിവർ ട്രാൻസ്ജെൻഡറുകൾക്കെതിരെ യാതൊരു പ്രതിഷേധവും ഉണ്ടായില്ല ഹൈക്കോടതി നിയോഗിച്ച നിരീക്ഷണസമിതി അംഗം ഡി

പി എ ഹേമചന്ദ്രനുമായി നേരത്തെ കൂടിക്കാഴ്ച നടത്തിയശേഷമാണ് ഇവർക്ക് ഇന്നലെ ദർശനാനുമതി നൽകിയത്

പാർട്ടി നേതാവ് സി

പത്മനാ ഭനാണ് ഇപ്പോൾ നിരാഹാരസമരം നടത്തുന്നത് ശബരിമല തീർത്ഥാടകർക്കുനേരെ മനുഷ്യാവകാശ ലംഘനം നടക്കുന്നുവെന്ന പരാതി അന്വേഷിക്കാൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സംഘം പത്തനംതിട്ടയിലെത്തി

പി നേതാവ് എ എൻ രാധാകൃഷ്ണന്റെ പരാതിയെ തുടർന്നാണ് ആറംഗ സംഘ മെത്തിയത് നിലക്കലിലെത്തുന്ന സംഘം തീർത്ഥാടകരിൽ നിന്ന് തെളിവെടുപ്പ് നടത്തും കേരളത്തിൽ സാമൂഹിക വിപ്ലവങ്ങൾക്ക് നേതൃത്വം നൽകിയ മന്നത്ത് പത്മനാഭൻ തുടങ്ങിവെച്ച പ്രസ്ഥാനമാണ് ഇപ്പോൾ നവോ ത്ഥാനപ്രവർത്തനത്തെ എതിർക്കുന്നതെന്ന് മന്ത്രി ജി സുധാകരൻ ആലപ്പുഴയിൽ പറഞ്ഞു വനിതാമതിലിന് രാഷ്ട്രീയമില്ലെന്നും അതിനെ നോക്കിക്കണ്ട സാമൂഹികബോധത്തിന്റെകണ്ണാടി നടി മഞ്ജുവാര്യർ മാറ്റണമെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു

കറൻസി അച്ചടിക്കുന്ന റിസർവ് ബാങ്കിന്റെ ഉപസ്ഥാപനമായ ഭാരതീയ റിസർവ്ബാങ്ക് നോട്ട് മുദ്രണിനാണ് കമ്മീഷൻ ഇതുസംബന്ധിച്ച് നിർദേശം നൽകിയത് ഇക്കാര്യത്തിൽ വിവരങ്ങൾ നൽകാനാവി ല്ലെന്ന് നേരത്തെ റിസർവ് ബാങ്ക് നോട്ട് മുദ്രൺ വൃക്തമാക്കിയിരു ന്നു

ആദ്യ ടെസ്റ്റിൽ ഇന്ത്യ വിജയി ച്ചിരുന്നു അടുത്ത സീസണിന് മുന്നോടിയായി ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് താര ലേലം ഇന്ന് ജയ്പൂരിൽ നടക്കും

ഇതിൽ ആറ് മലയാളി താരങ്ങളും ഉൾപ്പെടും കേരള ബ്ലാസ്റ്റേഴ്സ് പരിശീലകൻ ഡേവിഡ് ജെയിംസിനെ ടീം മാനേജ്മെന്റ് പുറത്താക്കി

എസ് എൽ സീസണിലെ മോശം പ്രകടനം തുടരുന്ന സാഹചര്യത്തിലാണ് പരിശീലകനെ പുറത്താ ക്കിയത് കഴിഞ്ഞ ദിവസം മുംബൈക്കെതിരായ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് ഒന്നിനെതിരെ ആറുഗോളുകൾക്ക് പരാജയപ്പെട്ടിരു ന്നു ചരിത്രത്തിലെ ഏറ്റവും വലിയ തോൽവി ടീമിന് സംഭവിച്ച കാര്യത്തിലാണ് ഡേവിഡ് ജെയിംസിനെ ഒഴിവാക്കാൻ മാനേ ജ്മെന്റ് തീരുമാനിച്ചത് വനിതാ മതിലിൽ പങ്കെടുക്കാൻ ഗവർണമെന്റ് ആരെയും നിർബന്ധിക്കില്ലെന്ന് മന്ത്രി എ

ബാലൻ പറഞ്ഞു

എം എസ് പെൻഷനേഴ്സ് അസോസി യേഷൻ സംസ്ഥാന സമ്മേളനം പാലക്കാട്ട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി വനിതാമതിൽ പൊളിക്കാൻ നടക്കുന്ന ശ്രമങ്ങൾ വിജയിക്കില്ലെന്നും മന്ത്രി പറഞ്ഞു

മൊയ്തീൻ നിർദേശം നൽകി

തിരഞ്ഞെടുപ്പ് പെരുമാറ്റടച്ചട്ടം നിലവിൽ വരുന്നതിന് മുൻപ് പദ്ധതികൾ പൂർത്തിയാക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു പ്രളയക്കെടുതി ബാധിച്ചിട്ടും പദ്ധതി നിർവഹണത്തിൽ സംസ്ഥാനത്ത് ഒന്നാമതെത്തിയ പാലക്കാട് ജില്ലയെ മന്ത്രി എ

പാലക്കാട് ജില്ലയിലെ തരൂർ നിയോജക മണ്ഡലത്തെ സംസ്ഥാനത്തെ ആദ്യ സമ്പൂർണ കുടിവെള്ള ലഭ്യത പ്രദേശമാക്കുമെന്നു മന്ത്രി എ

ബാലൻ പറഞ്ഞു കണ്ണമ്പ്ര കരായങ്കാട് കുടിവെള്ള പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി

ഏഴിമല നാവിക അക്കാദമിയുടെ സുരക്ഷാ ക്രമീകരണം വർദ്ധിപ്പിക്കാൻ ചുറ്റുമതിലിൽ സ്ഥാപിക്കുന്ന വൈദ്യുതി വേലി യുടെ ക്ഷമതാപരിശോധന വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന് കമാന്റിങ്ങ് ഓഫീസർ അറിയിച്ചു മറ്റന്നാൾ നാവിക അക്കാദമി യുടെ സംരക്ഷിത കടൽ മേഖലയിൽ വെടിവെപ്പു പരിശീലനം നടക്കുന്നതിനാൽ വൈകീട്ട് അഞ്ച് മുതൽ എട്ട് വരെ മീൻപിടിത്ത യാനങ്ങൾ ആ ഭാഗത്ത് പ്രവേശിക്കരുതെന്നും മുന്നറിയിപ്പുണ്ട് തൃശൂരിൽ ആനയുടെ കുത്തേറ്റ് ചികിത്സയിലായിരുന്ന പാപ്പാൻ മരിച്ചു പാലക്കാട് കൊട്ടേക്കാട് സ്വദേശി സൽവനാണ് മരിച്ചത് ഇന്നലെ രാത്രി തിരുമൂലങ്ങാട് ലക്ഷ്മണസ്വാമി ക്ഷേത്ര ത്തിലെ ഉത്സവത്തിനിടെയാണ് പാപ്പാന് കുത്തേറ്റത് കോഴിക്കോട് ഇരിങ്ങൽ സർഗാലയത്തിൽ രാജ്യാന്തര കരകൌ ശല മേള മറ്റന്നാൾ ആരംഭിക്കും വിദേശത്ത് നിന്നും സ്വദേശത്ത് നിന്നും മുന്നൂറിലേറെ കരകൌശല വിദ്ഗധർ പങ്കെടുക്കും

മലമ്പുഴ ഡാമിൽ നിന്ന് ഇടതുകര കനാൽ വഴി മൂന്നാം ഘട്ട ജലസേചനം നാളെ ആരംഭിക്കും കനാലിൽ ഇറങ്ങുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു

കേരളത്തെ മതപരമായി ഭിന്നിപ്പിക്കുന്ന വർഗീയ മതിലാണ് വനിതാമതിലെന്ന് ആർ

പി സംസ്ഥാന സെക്രട്ടറി എ എ അസീസ് ആലപ്പുഴയിൽ പറഞ്ഞു

എം പരിപാടിയായ വനിതാമതിലിന് ഗവൺമെന്റ് ഫണ്ട് വിനിയോഗിച്ചാൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ സ്വന്തം കയ്യിൽ നിന്ന് പണം പിന്നീട് നൽകേണ്ടിവ രുമെന്നും അദ്ദേഹം പറഞ്ഞു

തഴക്കര മാവേലിക്കര ആലപ്പുഴ തകഴി പുലിയൂർ എന്നി വിടങ്ങളിലാണ് രോഗബാധ കണ്ടെത്തിയത് ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്